സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടു

ഓപ്പൺ പുരുഷവിഭാഗം ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചും ജുവാൻ മാർട്ടിൻ ഡെൽ പെട്രോയും ഏറ്റുമുട്ടും

പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ അദ്ധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുക്കുന്നു മുതിർന്ന പാർട്ടി നേതാക്കളോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ശേഷം യോഗത്തിൽ പങ്കുചേരും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ വിയോഗത്തിന് ശേഷം ചേരുന്ന ആദ്യ പാർട്ടി ഉന്നതതല യോഗമാണിത് അടൽജിയുടെ പാത പിന്തുടർന്ന് പാർട്ടി ബഹുദൂരം മുന്നോട്ട് പോകുമെന്ന് യോഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പാർട്ടി വക്താവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞു നിലവിലെ പ്രധാന്റു സംഭവങ്ങളും വരാൻ പോകുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളും യോഗത്തിൽ ചർച്ചയാവുമെന്ന് അദ്ദേഹം പറ്ഞ്ഞു ന്രേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കി കൊണ്ട്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ ഫലപ്രദമായി ജനങ്ങളിൽ എത്തുന്നു എന്ന് ഉറപ്പ് വരുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച പറഞ്ഞു

മാനവരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കമേറിയ വിശ്വാസ ധാരയാണ് ഹിന്ദുമതമെന്ന് രണ്ടാം ലോക ഹിന്ദുകോൺഗ്രസിനുള്ള സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഹിന്ദു ദർശനങ്ങൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇന്നലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ ആരംഭിച്ച ലോക ഹിന്ദു സമ്മേളനത്തിൽ പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ ഭാരത് ബറായി പ്രധാനമന്ത്രിയുടെ സന്ദേശം വായിച്ചു

ടൊയോട്ട ബോഷ് ഷാങ്ഹായ് ഹ്യുണ്ടായി ഫോർഡ് യൂബർ തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള മൊബിലിറ്റി ഉച്ചകോടിയോടനുബന്ധിച്ചാണ് കമ്പനി പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയത്

അച്ചബാലിലെ ക്രപാലീസ് ഓട്ട്പോസ്റ്റിന് നേരെ ഇന്നലെ രാത്രി തീവ്രവാദികൾ അക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആര്രിട്ടിച്ചത്

ഇയാളിൽ നിന്ന് ആയുധവും കണ്ടെത്തി

ഡൽഹിയിൽ നടന്ന ഇന്ത്യാ യു

ഇന്നലെ ന്യൂഡൽഹിയിൽ ഇറാനിയൻ മന്ത്രി അബ്ബാസ് അഹമ്മദ് അഖൌജി മന്ത്രി സുരേഷ് പ്രഭുവുമായി കൂടിക്കാഴ്ച നടത്തി

എസ് ഡോളറിന്റെ കരാറിന്റെ ഭാഗ്ഗമായാണ് കോച്ചുകൾ നൽകുന്നത്

ഇന്നലെ രാത്രി പ്രേഗിൽ നടന്ന ഇന്ത്യാ ചെക്ക് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി ലിൻസ

ഇന്ത്യൻ കമ്പനികളും ചെക്ക് കമ്പനികളും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നാലാം വൃവസായ വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ കൊയ്യാൻ കൈകോർക്കണമെന്ന് ശ്രീ

ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് അഞ്ച് ധാരണാ പത്രങ്ങളിൽ ഒപ്പു വയ്ക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി

ഇന്റർനാഷണൽ ലേസർ റിസർച്ച് സെന്റർ അദ്ദേഹം സന്ദർശിക്കും

വി ലൈൻ പ്രെളിയത്തിൽ തകർന്നത് ഇന്നലെ രാത്രിയോടെയാണ് പുനസ്മാപിച്ചത് പമ്പാനദിക്ക് കുറുകെ പുതുതായി ലൈൻ വലിച്ചാണ് സന്നിധാനത്താൽ വൈദ്യുതി എത്തിച്ചത്

സന്നീധ്രാന്ം തീർത്ഥാടനപാത എന്നിവിടങ്ങളിലെ വഴിവിളക്കുകളും പു്നസ്ഥാപിച്ചിട്ടുണ്ട് പമ്പയിൽ മണപ്പുറം ഭാഗത്തു വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ തുടരുന്നു

രാജ്യത്ത് നഗരവല്കരണം വളരെ വേഗം നടപ്പിലാവുകയാണെന്നും അതനുസരിച്ച് മികച്ച ഗതാഗത സൌകരൃങ്ങൾ ഉണ്ടാകേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു

ദ്വൈവാർഷിക ഉച്ചകോടിയുടെ നാലാമത് പതിപ്പ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു

പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് യുവാക്കൾ സ്വന്തം ചോരയും നീമുപ്പിന്ൽകി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് തീർച്ചയായും പ്രതിഏലം പ്രനൽകേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു കായിക മേഖല പുരിപോഷിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങൾ പ്രാധാനൃം നൽകണം

കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഖേലോ ഇന്ത്യ പദ്ധതി പൻ വിജയമാകുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയതായി മുഖ്യമന്ത്രി പറഞ്ഞു

അതേസമയം യു